ഊർജ്ജ ഏജൻസിയുടെ പ്രശംസ

എല്ലാ കേബിൾ ടിവി ഓപ്പറേറ്റർമാരും ഡി

കോഴിക്കോട് പൂഴിത്തോട്ടിലും ഉരുൾപ്പൊട്ടൽ

ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ പി

സെമിയിൽ കടന്നു

ഡി കുമാരസ്വാമിക്ക് കർണ്ണാടക ഗവർണർ വാജുഭായ് വാല വീണ്ടും കത്തയച്ചു കുതിരക്കച്ചവടം നടക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുന്നതും അത്തരം പരാതികൾ തനിക്ക് ലഭിക്കുകയും ചെയ്യുന്നതിനാൽ ഇന്ന് തന്നെ വിശ്വാസവോട്ട് തേടണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കുളളിൽ ഉണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഗവർണർ ശ്രദ്ധിച്ചോ എന്ന സംശയമാണ് രണ്ടാം കത്ത് ലഭിച്ച ശേഷം മുഖ്യമന്ത്രി കുമാരസ്വാമി പ്രകടിപ്പിച്ചത് അതേസമയം ഗവർണർക്ക് വിശ്വാസ വോട്ട് വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ലെന്ന് കാട്ടി മുഖ്യമന്ത്രി സുപ്രീംകോടതിയെ സമീപിച്ചു

രാജ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവാരം താഴ്ന്നെന്ന ആരോപണം നിഷേധിച്ച മന്ത്രി അന്താരാഷ്ട്ര ഏജൻസി കമ്മീഷന് എ ഗ്രേഡാണ് നൽകിയിട്ടുളളതെന്നും വൃക്തമാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളിലുളളവർക്ക് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷകൾ നൽകാമെന്നും ഡൽഹിയിലേയ്ക്ക് വരേണ്ട കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു പുതിയ ഭേദഗതിയിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അദ്ധ്യക്ഷനായി സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസിനേയോ വിരമിച്ച ജഡ്ജിമാരേയോ നിയമിക്കാനാകും

വി

എച്ച് സംവിധാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം ്വിതരണക്കാർ രാജ്യത്ത് പലയിടത്തും ഡി

ചാനലുകൾ സംപ്രേഷണം ചെയ്യാറില്ലെന്നും ഇത് നിലവിലെ നിയമങ്ങളുടെ ലംഘനമാണെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു

ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേബിൾ റ്റി വി

വി ചാനലുകൾക്ക് പുറമേ എല്ലാ ഡി

ചാനലകളും തങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്ന് കാണിച്ച് എല്ലാ വിതരണക്കാരും സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്

ദേശീയോദ്ഗ്രഥനം സാധ്യമാക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിതുറക്കുന്നതിലും ഗവൺമെന്റ് നയങ്ങളും പദ്ധതികളും സാധാരണക്കാരിൽ എത്തിക്കുന്നതിലും ദൂരദർശൻ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു

ബാബറി മസ്ജിദ് കേസ് വിചാരണ നടത്താനും വിധി പറയാനും മാത്രമാണ് ജഡ്ജിക്ക് സേവന കാലാവധി നീട്ടി നൽകുന്നത്

ബാബറി മസ്ജിദ് കേസ് തീർപ്പാക്കാൻ ആറ് മാസം കൂടി അനുവദിക്കമെന്നാവശൃപ്പെട്ട് കേസ് പരിഗണിക്കുന്ന പ്രത്യേക ജഡ്ജി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്

ഡൽഹി ഗവൺമെന്റിന്റെ നിസ്റ്റഹകരണം കാരണം അവിടത്തെ കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് രാജ്യസഭയിൽ ചോദ്യോത്തര വേളയിൽ മന്ത്രി പറഞ്ഞു

സംസ്ഥാനത്ത് പമ്പാനദിയും ൾ കടൽ പെരിയാറുംഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നു കണ്ണൂരിൽ രാവിലെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഗ്രാമീണ റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു

മൂവാറ്റുപുഴ ആറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

സിന്ധു ഇന്തോനേഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ ഇന്ന് നടന്ന വനിതാവിഭാഗം സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ജപ്പാന്റെ നസോമി ഒകുഹാരെ യാണ് സിന്ധു തോൽപ്പിച്ചത്

എട്ടാം സീഡായ ശ്രീകാന്ത് ഹോങ്കോങ് താരത്തോടാണ് പരാജയപ്പെട്ടത് പുരുഷവിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രങ്കി റെഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യൻ സഖ്യത്തോട് പരാജയപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

സമഗ്രവും സ്ഥായിയായതുമായ വളർച്ച കൊണ്ടുവരാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ന്യൂഡൽഹിയിൽ ഊൌർജജ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിലാണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാന ഇത് പറഞ്ഞത്

കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലുണ്ടായ ശക്തമായ വളർച്ചു നിരവധി നയപരിഷ്കരണങ്ങൾ കൊണ്ടുണ്ടായതാണ് സാമ്പത്തിക സാമൂഹിക പ്രവർത്തനങ്ങളിൽ നയമാറ്റം ഉണ്ടായി ഇതാണ് വളർച്ചയ്ക്ക് കാരണമാവുകയെന്നും എന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു

സൈനികരുമായി ആശയവിനിമയം നടത്തുന്ന ശ്രീ രാജ്നാഥ്സിങ് ചൈനീസ് അതിർത്തിയിലെ നിലവിലെ സ്ഥിതി വിലയിരുത്തും

ലോകത്തുളള അഭയാർത്ഥികൾക്ക് ചേക്കേറാനുളള കേന്ദ്രമായി രാജ്യത്തെ മാറ്റാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു

നേരത്തെ ദുബായിലേക്ക് കടന്ന മൻസൂർഖാൻ തിരികെ ഡൽഹിയിൽ എത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്

വേണുഗോപാലിന്റെ സഹായം തേടി

ലോക സമ്പദ് വൃവസ്ഥകളുടെ നവീകരണ പ്രാപ്തി രേഖയാണ് ആഗോള നവീകരണ സൂചിക വിവിധ സമ്പദ് വൃവസ്ഥകളുടെ നവീകരണ റാങ്കിങ് ഈ സൂചികയിലൂടെ വ്യക്തമാകും